കോവിഡ് മഹാമാരിക്ക് എതിരായി രാജ്യത്ത് നടക്കുന്ന പോരാട്ടം ദുർബ്ബലമാകാൻ അനുവദിക്കരുതെന്ന് പ്രധാനമന്ത്രി സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗം പ്രവർത്തനനിരതമാകുന്ന കൂടുതൽ ്ട സാഹചര്യത്തിൽ മുൻകരുതലിന്റെ ആവശ്യമുണ്ടെന്നും മൻ കി ബ്ലൂർത്തിൽ നരേന്ദ്രമോദി

രാജ്യത്ത് കോവിഡ് മുക്തി നേടുന്നവരുടെ എണ്ണം വർധിക്കുന്നു

തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണവകുപ്പ്

കൊറോണയ് ക്കെതിരായ പോരാട്ടം ഇപ്പോഴൂം ്ഗൌർവമേറിയതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഈ പരിതഃസ്ഥിതിയിൽ കൂടുതൽ മുൻകരുതലിന്റെ ആവശ്യമുണ്ടെന്നും അദ്ദേഹം നിർദേശിച്ചു രാജ്യത്ത് എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള ശ്രമഫലമായി കൊറോണയ് ക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി തുടരുകയാണ്

ലോകത്തിന്റെ സ്ഥിതി നോക്കിയാൽ ഭാരതീയരുടെ നേട്ടം എത്ര വലുതാണെന്നു മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടുമീറ്റർ അകലം മുഖത്ത് മാസ്ക് കൈകഴുകൽ വീട്ടിലിരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ തുടരണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

മേക് ഇൻ ഇന്ത്യയ്ക്ക് പ്രോത്സാഹനം ലൂഭിക്കാ്ൻ എല്ലാവരും തങ്ങളുടേതായ ദൃഢനിശ്ചയങ്ങളെടുക്കുകയാണ്ണെന്നു് ശ്രീ മോദി പറഞ്ഞു

ഈ ആപദ്ഘട്ടത്തിൽ രാജ്യം എല്ലാ തരത്തിലും അവിടത്തെ ജനങ്ങൾക്കൊപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യത്തിന്റെ കൃഷിമേഖലയിൽ ഉണ്ടായിരിക്കുന്ന വിപത്തിനെ നമുക്കെല്ലാവർക്കും ഒത്തു ചേർന്ന് നേരിടാനാകുമെന്നും അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു

കൊറോണ വിപത്തിനിടയിൽ ആളുകൾ യോഗയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലത്തുന്നു എന്നു കാണാനാകുന്നുണ്ട് സമൂഹത്തിനും രോഗപ്രതിരോധശേഷിക്കും യോഗ ഉത്തമമിട്ടുണന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

എ

ഇതിൽ ഭൂരിഭാഗം ഫ്ളൈറ്റുകളും കേരളത്തിലേക്കാണ്

ഏറ്റവും കൂടുതൽ രോഗമുക്തി നിരക്കുള്ളത് ആൻഡമാൻ നിക്കോബാറിലും മിസോറാമിലുമാണ്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ട്രിച്ചി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

മൂന്ന് ഘട്ടമായി നിയന്ത്രണം പിൻവലിക്കും

സ്കൂൾ കോളേജുകൾ പരിശീലന സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് രണ്ടാം ഘട്ടത്തിൽ അനുമതി നൽകും സംസ്ഥാനങ്ങളുമായി ആലോചിച്ച് ജൂലൈ മാസത്തോടെ ഇത് സംബന്ധിച്ചു അന്തിമ തീരുമാനം കൈക്കൊള്ളും

ന്യൂനമർദം രൂപപ്പെട്ട സാഹചര്യത്തിൽ ക്ട്രിസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്കു സുദ്ധ്യൃത്യുണ്ട്